തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചു

ഉപതിരഞ്ഞെടുപ്പ് ആരംഭിച്ചു

സേന തകർത്തു

ആറു ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലെർട്ട്

ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങളായ കുഹു ഗാർഗ് ധ്രൂവ് റാവത്ത് എന്നിവർക്ക് കിരീടം

ബിജെപി ശിവസേന സഖ്യവും കോൺഗ്രസ്സ് എൻ സി

സി

ഐ എം എട്ട് സീറ്റിലും മത്സര രംഗത്തുണ്ട്

മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നീപ്പിസ് യുവസേനാ മേധാവി ആദിത്യ താക്കറെ കോൺഗ്രസ്സിലെ അ്ശോക് ചവാൻ പൃഥിരാജ് ചവാൻ തുടങ്ങിയവരാണ് മത്സരരംഗത്തൂളിള പ്ര്മുഖർ വോട്ടെടുപ്പിനായി കനത്ത സുരക്ഷ ഏർപ്പെടുത്തി

എൽ

ഇരുസംസ്ഥാനങ്ങളിലും വ്യാഴാഴ്ചയാണ് വോട്ടെണ്ണൽ

തമിഴ്നാട് രാജസ്ഥാൻ ഹിമാചൽപ്രദേശ് ഒഡീഷ തെലങ്കാന മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് മേഘാലയ പുതുച്ചേരി അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് മണ്ഡലങ്ങൾ വ്യാഴാഴ്ചയാണ് വോട്ടെണ്ണൽ

വീറും വാശിയും നിറഞ്ഞ പ്രചാരണത്തിനൊടുവിൽ സംസ്ഥാനത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ ഇന്ന് വിധിയെഴുതുന്നു്

സമാധാനപരമായ് പ്ലോട്ടെടുപ്പിന് എല്ലാ ഒരുക്കവും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു

എ ആയിരുന്ന പിബി അബ്ദുൾ റസാക്കിന്റെ മരണത്തെ തുട്ടർന്നും മറ്റിടങ്ങളിൽ സിറ്റിങ് എം

എ മാർ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനാലുമാണ് ഉപതെരഞ്ഞെടുപ്പ് ഇന്നലെ നിശ്ശബ്ദ പ്രചാരണത്തിലൂടെ ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു വട്ടിയൂർക്കാവിലും കോന്നിയിലും മഞ്ചേശ്വരത്തും ശക്തമായ ത്രികോണ മത്സരമാണ്

ബസ്തറിലെ ചിക്പാൽ ക്യാമ്പിൽ പോലീസ് സൂപ്രണ്ട് അഭിഷേക് പല്ലവിന് മുന്നിലാണ് ഇവർ കീഴടങ്ങിയത് സുരക്ഷാ സൈനികർക്കെതിരായ ആക്രമണങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുത്തവരാണ് ഇവരെന്ന് അധികൃതർ പറഞ്ഞു

സുരക്ഷാസേനയ്ക്കെതിരെ അട്ടിമറി പ്രവർത്തനങ്ങൾക്കു പദ്ധതിയിടുകയായിരുന്നു തീവ്രവാദികൾ

ഇയാളിൽ നിന്ന് ഏറിയതോതിൽ ആയുധങ്ങളും യുദ്ധു ഉപകരണങ്ങളും സുരക്ഷാ സേന പിടിച്ചെടുത്തു

പ്രകോപനമില്ലാത പാകിസ്ഥാൻ വെടിയുതിർത്തതിനെ തുടർന്നാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത് നീലം താഴ്വരയിലെ നാല് ഭീകരതാവളങ്ങളും സൈനിക കേന്ദ്രങ്ങളുമാണ് ലക്ഷ്യമിട്ടത് അത്മുഖാം കുന്ദാൽ ഷാഹി ജുറാ ലീപാ താഴ്വര എന്നിവിടങ്ങളിലാണ് ഭീകരകേന്ദ്രങ്ങൾ തകർത്തതെന്ന് സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു പ്രത്യാക്രമണം സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങ്ങിനോട് വിശദീകരിച്ചതായും സൈനിക മേധാവി പറഞ്ഞു

തയ്യാറെടുപ്പിനുള്ള ജാഗ്രതാ നിർദ്ദേശം ഓറഞ്ച് അലർട്ട് പല ജില്ലകളിലും നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ഇടുക്കി വയനാട് പാലക്കാട് മലപ്പുറം ജില്ലകൾക്കാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ട് ശക്തമായ ്കാറ്റ് വീശുമെന്നുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്

വിമാനങ്ങൾ എല്ലാ ദിവസവും സർവീസ് നടത്തും നാല് സ്ഥലങ്ങളിലേയ്ക്കുള്ള വിമാനങ്ങൾ ഒന്നിച്ച് ആരംഭിക്കുന്നത് ചരിത്ര നേട്ടമാണെന്നും പുതിയ നേട്ടം കൈവരിച്ച ത്രിപുര ജനതയ്ക്ക് ആശംസകൾ ആറിയിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു അധിവേഗം വളരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ത്രിപുരയെന്ന് ചടങ്ങിൽ പങ്കെടുത്ത പാർലമെന്റ് അംഗം ക്രിയിമ്ട്ടൌമിക് അഭിപ്രായപ്പെട്ടു

ഉരുൾപൊട്ടലുണ്ടായ്ക്കുള്പ്പാറ സന്ദർശിച്ചശേഷം മാധ്യമപ്രവർത്തകരോട് സംസ്മാരിക്കുകയായിരുന്നു അദ്ദേഹം

ജെ

ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയം കളിക്കാതെ സാധാരണ ജനങ്ങളുടെ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കുവേണ്ടി നേതാക്കൾ പോരാടണമെന്ന് ശ്രീ

ഇന്നലെ ശ്രീനഗറിൽ നടന്ന പാർട്ടി സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യം സമാധാനത്തിന്റെയും പുരോഗമനത്തിന്റെയും പാതയിൽ ആണെന്നും ഇതിനു തടസം ഉണ്ടാക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നും ശ്രീ രാം മാധവ് പറഞ്ഞു അലി മുഹമ്മദ് സാഗർ നെയിം അക്തർ സജാദ് ലോൺ ഡോ

ആയുഷ്മാൻ ഭാരത് സച്ച് ഭാരത് കിസാൻ സമ്മാൻ യോജന തുടങ്ങിയ ഗവൺമെന്റ് ക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ശ്രീമതി സ്മൃതി ഇറാനി ചടങ്ങിൽ പറഞ്ഞു തന്റെ മണ്ഡലമായ അമേഠിയിൽ നടത്തിയ ഏകദിന പര്യടനത്തിൽ വിവിധ പ്രകൃതി സംരക്ഷണ പരിപാടികളിലും ശുചിത്വ പരിപാടികളിലും മന്ത്രി പങ്കെടുത്തു ലക്നൌ വാരണാസി പാതയിലെ നിഹൽഗർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ശുചീകരണ ക്യാമ്പെയ്നും മന്ത്രി നയിച്ചു